ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി

ക്രൊയേഷ്യയെ തോൽപ്പിച്ചത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക്

ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രഗവൺമെന്റ് തീരുമാനം എടുത്തതിനു പിന്നാലെയാണിത് താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത പ്രധാനമന്ത്രിയെ ആദരിക്കാൻ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതായി പശ്ചിമബംഗാൾ ബിജെപി പ്രസിഡന്റ് ദിലീപ് ഖോഷ് അറിയിച്ചു രണ്ടാഴ്ച മുൻപ് ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ പുരുലിയ ജില്ലയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപി യ്ക്ക് കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുത്ത ആദിവാസി മേഖലയായ ജംഗൽമഹൽ മേഖലയിൽ പാർട്ടി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതായി സംസ്ഥാന ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു

കോൺഗ്ഗ്സീൻ്റെയും മറ്റ് പാർട്ടികളുടെയും നേതാക്കൾ രാജ്യസഭ പ്രിതിപ്ക്ഷ നേതാവ് ഗുലാം നബി ആസാദിന്റെ ഓഫീസിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്

രണ്ടു വർഷത്തേക്ക് സ്ഥാപനത്തിന്റെ ഉപാധ്യക്ഷ പദവിയിലേക്ക് ഇന്ത്യ എത്തുന്നതിന്റെ ഔദ്യോഗിക ചടങ്ങ് ഇന്ന് ഡൽഹിയിൽ നടക്കും

പരീക്ഷണ അടിസ്ഥാനത്തിൽ രാമനഗർ ജില്ലയിൽ ഇന്ന് ആരംഭിക്കുന്ന സർവ്വെയ്ക്ക് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി തുടക്കം കുറിക്കുമെന്ന് റവന്യൂമന്ത്രി ആർ

ആന്ധ്രാ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ന്യൂഡൽഹിയിലെ ആർ

പുരത്തെ പുതിയ സ്കൂൾ മന്ദിരം ഉത്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ന്യതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെപ്പറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നത തല സംയുക്ത കമ്മീഷൻ യോഗത്തിലും ശ്രീമതി സുഷമ സ്വരാജ് പങ്കെടുത്തു

അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

സർവകലാശാല കൊച്ചി സർവകലാശാല ്തൃശൂർ എൻജിനീയറിങ് കോളേജ് എന്നിവയുടെ പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്

കനത്ത മഴയിൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ വെള്ളം കയറി

തിരുവനന്തപുരത്ത് നെയ്യർഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ജനങ്ങൾക്ക് ജാഗ്രതാനിർദ്ദേശമുണ്ട്

വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒഡ്ടീഷ്യ തീരത്തെ ന്യൂനമർദ്ദത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായത്രാണ് തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ കാരണം വടക്കൻ ജീല്ലക്കളിൽ മഴയുടെ ശക്തി കുറയുന്നു സംസ്ഥാനമെമ്പാടും ളെല്ൻ കമ്പികളും പോസ്റ്റുകളും തകർന്ന് കെ എസ് ഇ

എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനം അധ്യക്ഷത വഹിക്കും സ്വദേശ് ദർശൻ പദ്ധതിക്ക് കീഴിലുള്ള ആധ്യാത്മിക സർക്യൂട്ടിൽ ശബരിമലയെയും പ്രസാദ് പദ്ധതിയിൽ ഗുരുവായൂരിനെയും കേന്ദ്ര ടൂറിസം വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു

ദക്ഷിണാഫ്രിക്കൻ താരം കെവിൻ ആൻഡേഴ്സിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ദ്യോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് ദ്യോക്കോവിച്ചിന്റെ നാലാം വിംബിൾടൺ കിരീടമാണിത്

മികച്ച പരിശീലനവും അനുഭവസമ്പത്തും വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ റാണി റാംപാൽ പറഞ്ഞു

മൂവരും ഇപ്പോൾ റാവൽപിണ്ടി ജയിലിലാണ് നവാസ് ഷെരീഫിനെയും മകളെയും വെള്ളിയാഴ്ചയാണ് ലാഹോറിൽ അറസ്റ്റ് ചെയ്തത്

കോടതി നടപടി ആരംഭിച്ചശേഷം ഇരുനേതാക്കളും നട്ടിത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്

കാബൂളിലെ ഗവൺമെന്റ് ഓഫിസിന്റെ കവാടത്തിലാണ് സ്ഫോടനമുണ്ടായത്

പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നോർത്ത് ചിറയിൻകീഴ് താലൂക്കുകളിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുക പരാതികൾ പരിഹരിച്ച് വൈകാതെ പദ്ധതി സംസ്ഥാനവ്യാപകമാക്കും

പുതിയ റേഷൻകാർഡ് അപേക്ഷ അംഗങ്ങളെ ചേർക്കൽ തെറ്റുതിരുത്തൽ തുടങ്ങി പതിനഞ്ചോളം സേവനങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം

എസ്